മറാത്ത സമുദായത്തിന് സംവരണം ഏർപ്പെടുത്തുന്നതിനായി നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിച്ചു കൂട്ടുമെന്ന് മഹാരാഷ്ട്ര ഗവൺമെന്റ്

റഷ്യൻ ഓപ്പൺ ബാഡ്മിന്റണിൽ പുരുഷ സിംഗിൾസ് കിരീടത്തിനായി ഇന്തൃയുടെ സൌരഭ് വർമ്മ ജപ്പാന്റെ കോക്കി വദനബെയുമായി ഇന്ന് ഏറ്റുമുട്ടും

ഉത്തർപ്രദേശിൽ ഈ വർഷം നിക്ഷേപക ഉച്ചകോടിയിൽ ഒപ്പൂപ്പിച്ചു

പരിപാടിയുടെ തത്സമയ സംപ്രേഷണത്തിനുള്ള സജ്ജീകരണങ്ങൾ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും ഒരുക്കിയിട്ടുണ്ട്

സ്മാർട്ട് സിറ്റീസ് മിഷൻ അടൽ മിഷൻ പ്രധാനമന്ത്രി ആവാസ് യോജന തുടങ്ങിയ പദ്ധതികളുടെ മൂന്നാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പരിപാടികളിലും പ്രധാനമന്ത്രി പങ്കെടുത്തു എല്ലാ വിഭാഗങ്ങളുടെയും വിവേചനരഹിതമായ വികസനമാണ് ഗവൺമെന്റിന്റെ നയമെന്ന് അദ്ദേഹം ചടങ്ങിൽ പറഞ്ഞു

വിവിധ സേവനങ്ങൾ ഓൺലൈനിലൂടെ ലഭ്യമാക്കിയത് രാജ്യത്തെ പൌരന്മാർക്ക് ഏറെ ആശ്വാസം പകരുന്നതാണ് ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെല്ലാം സുതാര്യമായിക്കുകയാണെന്നും അത് ഓരോരുത്തരിലും മാറ്റങ്ങൾ വരുത്തുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

മൻ കി ബാത്തിന്റെ മലയാള പരിഭാഷ ആകാശവാണിയും ദൂരദർശനും പ്രക്ഷേപീണം ചെയ്യും

മേഘാലയയിൽ കർഷകരും കരകൌശല തൊഴിലാളികളുമായി നടത്തിയ ആശയ വിനിമയത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അഭിപ്രായപ്പെട്ടത്

കൊച്ചിയിലെ കൃതുറമുഖത്ത് അടിസ്ഥാന സൌകര്യ വികസനത്തിനായി ടൂറിസ്റ്റ് പ്ലിക്കുപ്പ് കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിന്റെ പിന്തുണയോടെ നിരവധി പ്രഖ്ദത്കളാണ് നടപ്പിലാക്കുന്നത്

മറാത്ത സമുദായത്തിനായി തൊഴിൽ സംവരണത്തിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പിന്തുണ നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്

തന്നെ സ്വതന്ത്ര്യനാക്കിയെന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ വീഡിയോയിൽ പറയുന്നുണ്ട്

ഇതിന് മുൻപും ഷ്യദേൾത്തെ പോലീസുകാരോട് ജോലി ഉപേക്ഷിച്ചു പോകണമെന്ന് ഭീകരർ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് നേരിട്ടുള്ള ആക്രമണത്തിലും തട്ടിക്കൊണ്ടു പോകലിനും ശേഷം പോലീസുകാരാണ് തെക്കൻ നിരവധി കശ്മീരിലും മറ്റ് കൊല്ലപ്പെട്ടിട്ടുള്ളത്

സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരമാണിത്

അണക്കെട്ടുകളിലെ ജലനിരപ്പ് ഉയരുന്ന പശ്ചാത്തലത്തിൽ ഇടുക്കി ജില്ലാ കലക്ടർ അടിയന്തര യോഗം വിളിച്ചു ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് ഏഴ് അടി കൂടി പിന്നിട്ടാൽ ചെറുതോണി അണക്കെട്ടിലെ ഷട്ടറുകൾ ഉയർത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇക്കാര്യത്തിൽ ഏകദേശം ഉറപ്പായ സാഹചര്യമാണുള്ളത്

മണി കെഎസ്ഇബി ഉദ്യോഗസ്ഥർക്കു നിർദേശം നൽകി

മൊഹാലിയിലായിരിക്കും പദ്ധതി ആദ്യം നടപ്പിലാക്കുന്നതെന്നും അദ്ദേഹം പൊതുപരിപാടിയിൽ പറഞ്ഞു ഗ്യാസ് പൈപ്പ് ലൈനുകൾ ജനങ്ങളുടെ സാമ്പത്തികഭാരം ലഘൂകരിക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു സ്ത്രീകൾക്ക് പരിശീലനം നൽകുന്നതിനായി ആരംഭിക്കുന്ന ദേശീയ നൈപുണ്യകേന്ദ്രത്തിന് അദ്ദേഹം തറക്കല്ലിട്ടു രാജ്യത്ത് സ്ത്രീകൾക്ക് മാത്രമായി നൈപുണ്യ പരിശീലനം നൽകുന്ന ആദ്യ പഞ്ചാബിൽ ആരംഭിക്കുന്നത്

ധർമ്മേന്ദ്ര പ്രധാൻ തുടക്കം കുറിച്ചു

പുതിയ പാത ഗതാഗത വ്യാപാര വാണിജ്യ രംഗത്ത് വിപ്തവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു

കേന്ദ്രം കൂടുതൽ സുരക്ഷാസേനയെ സംസ്ഥാനത്തേയ്ക്ക് അയച്ചതായി സ്പെഷ്യൽ ഡി

അതേസമയം മുഖ്യമന്ത്രി സർബാനന്ദ സോനോവാൾ ഗുവാഹത്തിയിൽ ഇന്ന് സർവകക്ഷിയോഗം വിളിച്ചിട്ടുണ്ട് ആസാമിലെ അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്താൻ സഹായിക്കുന്ന പൌരത്വ രജിസ്റ്റർ നാളെയാണ് പ്രസിദ്ധീകരിക്കുന്നത്

മിക്സഡ് ഡബിൾസ് കിരീടത്തിനായി ഇന്ത്യൻ ജോഡികളായ റോഹൻ കബൂറും കുഹുഗാർഗും ഫൈനലിൽ പ്രവേശിച്ചു

ഇവരുടെ പക്കൽ നിന്ന് ആയുധങ്ങൾ കണ്ടെത്തിയതായി അഡീഷണൽ ഡയറക്ടർ ഓഫ് പോലീസ് ആർ

മാലിക് അറിയിച്ചു

ജീസ്റ്റ് നിഷ്കർഷിക്കുന്ന മാനദണ്ഡങ്ങൾ കൈവരിക്കാൻ സർവകല്പ്രിൽലകളെ പ്രാപ്തമാക്കുന്നതിനും വൈസ് ചാൻസിലർമാർ പ്രതീജ്ഞാ്ബദ്ധരാണെന്ന് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു